കാസർകോട് തൃക്കരിപ്പൂരിൽ കള്ളവോട്ട് ചെയ്തവർക്ക് എതിരെ കേസെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ റുടെ നിർദേശം

എസ് ആർ ടി സി

ആഞ്ഞടിച്ച ഫോനി പുഴലിക്കാറ്റിൽ ഒഡീഷയിലും ആന്ധ്രപ്രദേശിലുട് കുന്ത്തനാശനഷ്ടം ഒഡീഷയിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു

മുൻ ധനകാരൃമ്ന്ത്രിയും സി

ഐ എം നേതാവുമായിരുന്ന വി

നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ സൂപ്രീംകോടതി സ്റ്റേ ചെയ്തു

അതിനിടെ കായംകുളത്തും കള്ളവോട്ട് നടന്നെന്ന് ചൂണ്ടിക്കാട്ടി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി

കായംകുളം മുൻസിപ്പൽ ്കൌൺസിലറും സി

എം വ്യാപകമായി പോസ്റ്റൽ വോട്ടുകൾ തട്ടിയെടുത്തുവെന്ന് പത്തനംതിട്ടയിലെ എൻ

പത്തനംതിട്ട മണ്ഡലത്തിൽ ്മാത്രം മൂവായിരത്തോളം പോസ്റ്റൽ വോട്ടുകളാണ് സിപ്പിഎ് തട്ടിയെടുത്തിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു

ഇതിനെതിരേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു

കെ എസ് ആർ ടി സി യുടെ ഉപഹർജിയിലാണ് ഉത്തരവ്

പിരിച്ചുവിടൽ നടപടിക്കെതിരെ ഗവൺമെന്റ് സമർപ്പിച്ച അപ്പീൽ സുപ്രീംകോടതി അടുത്ത തിങ്കളാഴ്ച ് പരിഗണിക്കും ഫോനി ആഞ്ഞടിച്ച ഫോനി ചുഴലിക്കാറ്റിൽ ഒഡീഷയിലും ആന്ധ്രപ്രദേശിലും കനത്തനാശനഷ്ടം ഒഡീഷയിലെ വിവിധ സ്ഥലങ്ങളിലായി ഉണ്ടായ അപകടത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു

നേരത്തെ തന്നെ ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ചതിനാൽ വൻദുരന്തം ഒഴിവായി ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങളും കെട്ടിടങ്ങളും കടപുഴകി

വിവിധ സേനാവിഭാഗങ്ങളുടെ ദൂരിത്ാശ്വാസപ്രവർത്തനങ്ങൾ തുടരുകയാണ്

എം നേതാവുമായിരുന്ന വി

കൊച്ചി രവിപുരം ശ്മശാനത്തിൽ പൂർണ സംസ്ഥാന ബഹുമതികളോടെയായിരുന്നു സംസ്കാരം നേരത്തെ കൊച്ചിയിലെ കലൂരിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികശരീരത്തിൽ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ രാഷ്ട്രീയനേതാക്കൾ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി

സീറ്റുകൾക്ക് മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്ഥിരാംഗീകാരം ലഭിച്ചതായി മന്ത്രി കെ

ഇനി മുതൽ ഓരോ പ്രവേശനപ്രക്രിയക്കും മുമ്പും എം സി ഐ

നടപടി നിയമസഭാ ചോദ്യോത്തരങ്ങൾക്ക് സമയബന്ധിതമായി മറുപടി നൽകാത്ത വകുപ്പുകൾക്കുതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ചീഫ് ക്സ്ക്രട്ടറി ടോം ജോസ് മുന്നറിയിപ്പ് നൽകി നിയമസഭ്സ്മ്മേളനങ്ങളിൽ ഉന്നയിക്കുന്ന പല ചോദ്യങ്ങൾക്കും കൃത്യസമയത്ത് മറുപടി നൽകുന്നതിൽ വിവിധ വകുപ്പുകൾ അലംഭാവം കാട്ടുന്നുവെന്ന് പ്രതിപക്ഷം നേരത്തെ പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറിയുടെ തീരുമാനം സമയ ബന്ധിതമായി ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും വിവിധ വകുപ്പ് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ ചീഫ് സെക്രട്ടറി വൃക്തമാക്കിയിട്ടുണ്ട് ഉടമസ്ഥാവകാശം തമിഴ്നാട്ടിലെ കുറ്റാലം പാലസ് ഉൾപ്പെടെയുള്ള കെട്ടിടത്തിന്റെയും സ്ഥലത്തിന്റേയും ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേരളത്തിന്റെ അവകാശവാദം തമിഴ്നാട് ഗവൺമെന്റ് അംഗീകരിച്ചു

കുറ്റാലം പാലസിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അനന്തരാവകാശികൾ ചെന്നൈ ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൽ സമർപ്പിച്ച കേസ് പരിശോധിച്ച് തീർപ്പ് കല്പിക്കുന്നതിന് തിരുനെൽവേലി റവന്യൂ ഡിവിഷണൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയിരുന്നു

ദിലീപിന്റെ ഹർജിയിൽ ജുലൈയിൽ ക്യോട്തി വാദം കേൾക്കും നേരത്തെ വിചാരണ കോടതിയും ക്ലെഹ്ക്കോടതിയും മെമ്മറി കാർഡ് ആവശ്യപ്പെട്ടുള്ള ദില്പീപ്പിന്റെ ഹർജികൾ തള്ളിയിരുന്നു

മഴക്കാലത്തിനു മുന്നോടിയായി കുളങ്ങളും നദികളും തോടുകളും വൃത്തിയാക്കി ഒഴുക്കു സുഗമമാക്കുന്നതിനുള്ള നടപടികൾ തദ്ദേശസ്വയംഭരണ വകുപ്പ് സ്വീകരിക്കണം മാലിന്യ സംസ്കരണത്തിന് ജനവാസമില്ലാത്ത് സ്ഥലം കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കുവാൻ ജില്ലാ കളക്ടർമാരെയും ഗവൺമെന്റ് ചുമതലപ്പെടുത്തി

ബോംബ് സ്കാഡ് പരിശോധന തുടരുകയാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മണ്ണ് നീക്കുന്നതിനിടെയാണ് ബോംബുകൾ കണ്ടെത്തിയത്

പദ്ധതിയെക്കുറിച്ച് ഹരിത് കേരളം മിഷൻ ഉപാധൃക്ഷ ഡോ

ഇതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ മാനന്തവാടി മൈസൂർ അന്തർ സംസ്ഥാന പാത ഉപരോധിച്ചു

പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച വീടുകളുടെ നിർമാണം തട്ടഞ്ഞതാണ് ആദിവാസികളെ പ്രകോപിപ്പിച്ചത്

പ്രളയ ബാധിതരുടെ പരാതികളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർപ്പുകല്പിക്കാൻ ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തുകയും പരാതികൾ സ്വീകരിക്കേണ്ട അവസാനതീയതി നീട്ടി നൽകാനും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു

മരിച്ച നിലയിൽ കോഴിക്കോട് തൃശാലക്കുളത്ത് വാടക വീട്ടിൽ യുവതിയെയും മകളെയും തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തെ കുറിച്ച് പൊലീസ് അന്വേഷണം ആരംഭിച്ചു ഒഡീഷ സ്വദേശിയായ അനിൽ ബിക്കാരി ദാസിന്റെ ഭാര്യ രൂപാലിയ മൂന്ന് വയസ്കാരിയായ മകൾ ആരാധ്യ എന്നിവരെയാണ് തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടത്തിയത്

മാറാട് സ്വദേശിയും ബസിലെ ക്സീനറുമായ അൻഷാദ് ആണ് അതേ ബസിന്റെ പിൻചക്രം കയറി മരിച്ചത്

റോഡിന് സമീപത്തെ ക്ഷേത്രത്തിലെ കാണിക്കപ്പെട്ടിയിൽ ്നേ്ർച്ചയിട്ട് ഓടിക്കയറാൻ ശ്രമിക്കവേയാണ് അപകടമുണ്ടായിത്